രാജ്യസഭാ നടപടികൾ തട്ടസ്സപ്പെടുത്തിയ എം

സംസ്ഥാന്യ ചലചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു

കാന്തൻ ദി ലൌവർ ഓഫ് കളർ ജയ സൂര്യയും സൌബിൻ ഷാഹിറും മികച്ച നടന്മാർ മികച്ച് നടി നിമിഷ സജയൻ മികച്ച സംവിധായകൻ ശ്യാമപ്രസാദ്

ശ്രീനഗർ ജമ്മു ലേ വിമാനത്താവളങ്ങളും ചണ്ഡിഖണ്ഡ് അമൃത്സർ വിമാനത്താവളങ്ങളിലും യാത്രാവിമാനങ്ങളുടെ സർവ്വീസ് തൽക്കാല ത്തേക്ക് നിർത്തിവെച്ചു ബദ്ഗാം ജില്ലയിൽ വ്യോമസേനാവിമാനം തകർന്നുവീഴുകയും അതിർത്തിക്കപ്പുറത്തുനിന്ന് പാകിസ്താൻ ഷെല്ലാക്ര മണം ആരംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് യാത്രാവിമാന ങ്ങളുടെ സർവ്വീസുകൾ നിർത്തിവെച്ചത് വിമാനത്താവളങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തിവരികയാണ്

എന്നാൽ മടങ്ങുന്നതിനിടെ അവർ ബോംബാക്രമണം നടത്തിയതായി വ്യോമസേനാ ഉദ്യോഗസ്ഥർ അറിയിച്ചു നാശനഷ്ടങ്ങളെക്കുറിച്ച് അറി വായിട്ടില്ല ഉറി മേഖലയിൽ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടിത്തി

ഇന്ത്യൻ സേന കനത്ത തിരിച്ചടി നൽകിയതായും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും വെടിവെപ്പ് തുടരുകയാണെന്നും അറിയിപ്പിൽ വൃക്ത മാക്കി ജമ്മു കശ്മീരിലെ ഷോപ്പിയാനിൽ സൈന്യം രണ്ട് ജയ്ഷെ മുഹമ്മദ് ഭീകരരെ വധിച്ചു പുലർച്ചെയാണ് സുരക്ഷാ സൈനൃവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചത് ഷോപ്പിയാനിലെ മീമെന്ദറിൽ ഭീകരർ ഒളിച്ചിരിപ്പു ണ്ടെന്ന വിവരത്തെ തുടർന്ന് തിര ച്ചിൽ നടത്തിയ സൈനികർക്കെതിരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു വെന്ന് സേനാവക്താവ് ശ്രീനഗറിൽ അറിയിച്ചു പ്രദേശത്ത്നിന്ന് നിര വധി ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തിട്ടുണ്ട് ജമ്മുവിലെ ബദ്ഗാമിൽ ഇന്ത്യൻ വ്യോമസേന വിമാനം തകർന്ന് രണ്ട് പൈലറ്റുകൾ മരിച്ചതായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ ശ്രീനഗറിൽ അറിയി ച്ചു ഇന്നുരാവിലെ പത്തുമണിയോടെയാണ് വിമാനം തകർന്നുവീണത് പാകിസ്താനിലെ ഭീകരവാദികേന്ദ്രങ്ങളിൽ ഇന്ത്യ വ്യോമാക്രമണം നട ത്തിയ പശ്ചാത്തലത്തിൽ പാക്പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇന്ന് ദേശീയ കമാന്റ് അതോറിട്ടി യോഗം വിളിച്ചു അണ്വായുധമടക്കം വിഷയങ്ങളിൽ അന്തിമതീരുമാനമെടുക്കുന്ന രാജ്യത്തെ പരമോന്നത സമിതിയാണ് കമാന്റ് അതോറിട്ടി ഇന്ത്യൻ നടപടി ചർച്ച ചെയ്യാൻ പാകിസ്താൻ പാർല മെന്റിന്റെ സംയുക്തസമ്മേളനവും ഇന്നു ചേരുന്നുണ്ട് രാജ്യസഭയിൽ നടപടികൾ അനുവദിക്കാതിരുന്ന അംഗങ്ങളെ ചോദ്യം ചെയ്യാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു

പ്രതിപക്ഷ ഭൂരി പക്ഷം നിലനിൽക്കുന്ന രാജ്യസഭയിൽ എം

മാരുടെ നിസ്സഹകരണം മൂലം പലസുപ്രധാന തീരുമാനങ്ങളും എടുക്കാൻ ആയില്ലെന്ന് പ്രധാന മന്ത്രി പറഞ്ഞു

യൂത്ത് പാർലമെന്റ് ഫെസ്റ്റിവലിലെ ജേതാക്കൾക്ക് അവാർഡുകൾ പ്രധാനമന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്തു ഗാന്ധി സമാധാന പുരസ്കാരങ്ങൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വിതരണം ചെയ്തു

ചടങ്ങിൽ പ്രധാന മന്ത്രി നരേന്ദ്രമോദി സംബന്ധിച്ചു ആദിവാസി മേഖലകളിൽ വികസന മെത്തിക്കുന്ന പ്രവ്ർത്തനത്തിനാണ് വിവേകാനന്ദ സെന്ററിന് അവാർഡ് വിദ്യാർത്ഥികൾക്ക് ഗുണനിലവാരമുള്ള ഭക്ഷണമെത്തിക്കാൻ സാങ്കേതി കവിദ്യ ഉപയോഗപ്പെടുത്തിയതിന് അക്ഷയപത്ര ഫൌണ്ടേഷനും ശുചിത്വ രംഗത്തെ പ്രവർത്തനത്തിന് സുലഭ് ഇന്റർനാഷണലും ദശലക്ഷക്കണക്കിന് കുട്ടികൾക്ക് വിദ്യാഭ്യാസമെത്തിക്കുന്ന പ്രവർത്തനത്തിന് എകൽ അഭി യാൽ ട്രസ്റ്റിനും അവാർഡ് ലഭിച്ചു ജപ്പാനിലെ ജീവകാരുണ്യപ്രവർത്ത നത്തിനാണ് നിപ്പോൺ ഫൌണ്ടേഷൻ ചെയർമാൻ യോഹെ സസാക്കാവയ്ക്ക് അവാർഡ്

മികച്ച ചിത്രമായി കാന്തൻ ദ ലൌവർ ഓഫ് കളർ നെ തിരഞ്ഞെ ടുത്തു ജയസൂര്യയും സൌബിൻ ഷാഹിർ മികച്ച നടനെന്ന ബഹുമതി പങ്കുവെച്ചു ഞാൻ മേരിക്കുട്ടി ക്യാപ്റ്റൻ തുടങ്ങിയ ചിത്രങ്ങളിലെ അഭി നയം മുൻനിർത്തിയാണ് ജയസൂര്യ അവാർഡിന് അർഹനായത് മികച്ചനടി നിമിഷ സജയനാണ് മികച്ച സ്വഭാവ നടൻ ജോജു ജോർജ്ജും സ്വഭാവ നടി സാവിത്രി ശ്രീധരനുമാണ്

ജോയ്മാത്യുവാണ് മികച്ച കഥാകൃത്ത് മികച്ച ക്യാമ റാമാൻ കെ

മോഹനൻ മികച്ച പിന്നണി ഗായകൻ വിജയ് യേശു ദാസും മികച്ച പിന്നണി ഗായിക ശ്രേയ ഘോഷാലുമാണ് മികച്ച ബാലനടനായി മാസ്റ്റർ മിഥുനെ തിരഞ്ഞെടുത്തു

ജയരാ ജന്റെ മലയാള സിനിമ പിന്നിട്ട വഴികൾ ഏറ്റവും നല്ല ചലചിത്ര പുസ്ത കത്തിനുള്ള അവാർഡ് നേടി നെല്ലിന്റെ താങ്ങുവില കിലോയ്ക്ക് ഒരു രൂപ വർദ്ധിപ്പിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു

ഇത് ഗവൺമെന്റ് നൽകും കർഷക ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ബാങ്കുകളുടെ യോഗം വിളിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു വായ്പ്പയെടുക്കുന്ന കർഷ കരെ ബാങ്ക് അധികൃതർ സമ്മർദ്ദത്തിലാക്കരുതെന്ന് മന്ത്രി വി

കടക്കാരായ കർഷകർക്ക് ജപ്തി നോട്ടീസ് അയക്കുന്ന സമ്പ്രദായം അവസാനിപ്പിക്കണം ഈ നടപടി കർഷക ആത്മ ഹത്യയ്ക്ക് കാരണമാകുന്നതായി മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു പെരിയ ഇരട്ട കൊലപാതകിഅന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത് കേസ് അട്ടിമറിക്കാനാണെന്ന് കെപിസിസി പ്രസിഡൻറ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൊല്പത്ത് പറഞ്ഞു ജനമഹായാത്രയുടെ ഭാഗമായി കൊല്ലത്ത് മാധ്യമങ്ങളുമായി വാർത്താ സമ്മേളനത്തിൽ സംവദിക്കുക യായിരുന്നു അദ്ദേഹം

ബി ഐ അന്വേഷിക്കണം അറസ്റ്റിലായ പ്രതി അടിക്കടി മൊഴിമാറ്റുന്നത് പാർട്ടി പോലീസ് ഒത്താശയോടെ കേസ് വഴിതെറ്റിക്കാൻ ആണെന്നും മുല്ലപ്പള്ളി ആരോപിച്ചു തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് കൈമാറിയത് വൻ അഴിമതിയാണെന്നും മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തി വിമാനത്താവള കൈമാറ്റ സമയത്ത് തന്നെ സംസ്ഥാന ഗവൺമെന്റ് നിയമനടപടി സ്വീകരിക്കാത്തതെന്തു കൊണ്ടെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവ ശ്യപ്പെട്ടു ലോക്സഭ തെരഞ്ഞെടുപ്പ് സീറ്റ് സംബന്ധിച്ച് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച കോഴിക്കോട്ട് മറ്റന്നാൾ നടക്കുമെന്ന് മുല്ലപ്പള്ളി വൃക്തമാക്കി ജനമഹായാത്ര കൊല്ലത്തെ പരൃടനം പൂർത്തിയാക്കി തിരുവനന്തപുരം ജില്ലയിലേക്ക് കടന്നു പെരിയ ഇരട്ടക്കൊലക്കേസ് അന്വേഷണം സി ബി ഐ യ്ക്ക് വിടണ മെന്നാവശൃപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാസർകോട് കലക്ട റേറ്റിനുമുന്നിൽ ആരംഭിച്ച ് നിരാഹാര സമരം തുടരുന്നു

സി സി പ്രസിഡന്റ് ഹക്കിംകുന്നേലിന്റെ നേതൃത്വത്തിലാണ് നിരാഹാ രസമരം ഡൽഹി കരോൾ ബാഗിൽ നാല് നില കെട്ടിടം തകർന്നുവീണു

സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ് ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല

രാത്രി ഏഴിന് കളി ആരംഭിക്കും

ഇന്ത്യ ആസ്ട്രേലിയ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ശനിയാഴ്ച തുടക്കമാവും പരമ്പരയിൽ അഞ്ച് മത്സരങ്ങളുണ്ട് കാശ്മീരിലെ പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച വർക്കെതിരായ ആക്രമണം സ്വാഗതാർഹമാണെന്നും ഇന്ത്യൻ സേനയ്ക്കൊപ്പം ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

എ മജീദ് പറഞ്ഞു മഹത്തായ രാജ്യ മാണ് ഇന്ത്യ ഇവിടെ കടന്നു കയറി ആക്രമണം നടത്തുന്നവരെ മട യിൽപോയി നേരിടണമെന്നും കനത്തി പ്രഹരത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പാക്കിസ്ഥാൻ ഇനിയെങ്കിലും തയാറാകണമെന്നും കെ

എ മജീദ് പ്രസ്താവനയിൽ വ്യക്തമാക്കി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖലാ സംരക്ഷണ ജാഥ ഇന്ന് എറണാകുളം ജില്ല യിൽ പ്രവേശിക്കും

ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേ ന്ദ്രൻ നയിക്കുന്ന് വടക്കൻ മേഖലാ കേരള സംരക്ഷണ യാത്ര ഇന്ന് പാല ക്കാട് ജില്ലയിലും പ്രവേശിക്കും സംസ്ഥാന മന്ത്രിസഭയുടെ ആയിരം ദിനാഘോഷ ങ്ങളുടെ ഭാഗമായി കണ്ണൂരിൽ മിനി മാരത്തണും ഫൺ റണ്ണും നടത്തി പുരുഷ വിഭാഗത്തിൽ കോതമംഗലം എം എ കോളേജിലെ ഷെറിൻ ജോസും വനിതാ വിഭാഗത്തിൽ പാല അൽഫോൺസ കോളേജിലെ എം എസ് ശ്രുതിയും ജേതാക്കളായി ടൌൺ സ്കയറിൽ ഒളിംപ്യൻ ഫ്രെഡറിക് മാമ്പൽ ഫ്ളാഗ് ഓഫ് ചെയ്തു

ഫുട്ബോളിൽ ഇന്ന് ജാംഷഡ്പൂർ എഫ്

യെ നേരിടും രാത്രി ഏഴരയ്ക്ക് ജാംഷഡ്പൂരിലാണ് മത്സ രം ബ്രൂവറി ഡിസ്റ്റിലറി കേസ് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും

രാമകൃഷ്ണൻ എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തലയാണ് ഹരജി നൽകിയത് ഹൈന്ദവം അയ്യപ്പ ഭക്ത സംഗമം നാളെ കോഴിക്കോട്ട് കടപ്പുറത്ത് നടക്കും വിവിധ സന്യാസാശ്രമങ്ങൾ നേതൃത്വം നൽകുന്ന സനാതന ധർമ പരിഷത്തിന്റെ പരിപാടി വൈകീട്ട് നാലിന് ആരംഭിക്കും കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീത കാവൃത്തിന്റെ നൂറാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് ദേവഗിരി കോളജിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ട് ദിവസത്തെ സെമിനാറും പുസ്തകോ ത്സവവും സംഘടിപ്പിക്കും സെമിനാർ രാവിലെ കവി ബാലചന്ദ്രൻ ചുള്ളി ക്കാട് ഉദ്ഘാടനം ചെയ്യും

കുട്ടികൾ സ്ഥിരമായി സ്കൂളിലെത്തുന്ന സാഹചര്യം ഉണ്ടാ ക്കാനാണ് സൈക്കിൾ വിതരണമെന്ന് ജില്ലാപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി സുമേഷ് അറിയിച്ചു